അഹമ്മദാബാദിൽ ആദ്യഘട്ട മെട്രോ റെയിൽ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സായുധ സേനകളുടെ സാമർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്ന് ശ്രീ

ബലാക്കോട്ട് വ്യോമാക്രമണം ലക്ഷ്യം കൈവരിച്ചതിന്റെ തെളിവാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബീരേന്ദർ സിംഗ് ധനോവ

മെട്രോയിൽ യാത്ര ചെയ്ത അദ്ദേഹം കുട്ടികളുമായി ആശ്രിയ്പിനിമയം നടത്തി തുടർന്ന് അദ്ദേഹം രണ്ടാം ഘട്ട മെട്രോ റെയിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ചു് ് ജന്ങളുടെ യാത്രാസൌകര്യം വർദ്ധിപ്പിക്കാനും സമയും ലാഭിക്കാനും മെട്രോ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ അഹമ്മദാബാദിനു സമീപം ജസ്പൂർ ഗ്രാമത്തിൽ വിശ്വ ഉമിയ ധം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു

ദക്ഷിണ തമിഴ്നാട്ടിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

രാജ്യത്തെ ഏത് ഭീഷണിയിൽ നിന്നും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവരാണ് ഇന്ത്യൻ വ്യോമസേന പ്പോരാളികളെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ തന്നെ മികച്ച സേനയാണ് ഇന്തൃയ്ക്കുള്ളതെന്ന് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം തെളിഞ്ഞതായും രാഷ്ട്രപതി പറഞ്ഞു തമിഴ്നാട്ടിലെ സുളൂർ വ്യോമസേന താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിവേഗം വളരുന്ന രാജ്യമായ ഇന്ത്യയുടെ സംരക്ഷണത്തിന് ഇവിടുത്തെ സേനയ്ക്ക് പൂർണമായും പ്രാപ്തിയുണ്ടെന്നും ശ്രീ

നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി വ്യോമസേനയെ ആധുനിക വൽക്കരിച്ചുവരികയാണ് പ്രതിരോധ രംഗത്തിന് പുറമെ ദുരന്ത ആതുര മേഖലയിലും വ്യോമസേന നിസ്തുല സേവനമാണ് കാഴ്ചവെയ്ക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു

കോയമ്പത്തൂരിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സംബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ആക്രമണം ലക്ഷ്യം കണ്ടതിന്റെ തെളിവാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രറഞ്ഞു

റെയിൽ പെട്രോളിയം പ്രകൃതിവാതകം ബി എസ് എൻ എൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനം സ്ഥലമേറ്റെടുത്തു നൽകൂന്നതിലെ കാലതാമസം മാത്രമാണ് പദ്ധതി നടത്തിപ്പിനെ വൈകിപ്പിക്കുന്നത്

ഡി എ ഗവൺമെന്റ് പ്രതിവർഷം സംസ്ഥാനത്തിന് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ബ്രഹ്മപുത്ര നദിതടങ്ങളിലൂടെ കടസ്സുപ്പോകുന്ന അതിർത്തിയുടെ സംരക്ഷണവും ഈ സം്വിധാനത്തിനു കീഴിൽ വരും

എസ് എഫിന്റെ സാങ്കേതിക വിഭാഗം ബോൾഡ് കിറ്റ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത് റെക്കോഡ് വേഗത്തിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്

ചെന്നൈയിൽ ഡി

നേതാവ് എം

സ്റ്റാലിനും വി

നേതാവ് തോൽ തിരുമാവളവനും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത്

മുൻ കോൺഗ്രസ്സ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുടെ നേതൃത്വത്തിൽ ജെ ഡി എസ് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുമായാണ് ചർച്ച നടത്തിയത്

ഡി

അതേസമയും കോൺഗ്രസ്സ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായി മുതിർന്ന ജെട്ട്ഡി എസ് നേതാവ് എച്ച്

ദേവഗൌഡ ഒരാഴ്ചയ്ക്കുകാട് ചർച്ച നടത്തുമെന്നും സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാന്മ്യാക്യുമെന്നും കോൺഗ്രസ്സ് ജെ ഡി

എൽ

വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മല്ലികാ അർജുൻ ഖാർഗെയ്ക്കെതിരെ ബി ജെ

സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ശ്രീ ഉമേഷ് ജാദവ് പറഞ്ഞു

കാശിവിശ്വനാഥ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലും ദർശനത്തിന് പുലർച്ചെ മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നൂടിക്കുന്ന കുംഭമേളയിൽ ലക്ഷങ്ങളാണ് പുണ്യ സ്നാനത്തിനൂയി അവസാന ദിവസമായി ഇന്ന് എത്തിച്ചേർന്നത്

കേരളത്തിലും വിവിധ ശിവ്ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടന്നു

പിതൃതർപ്പണത്തിനായി വിപുലമായ സൌകരൃങ്ങളാണ് ഒരുക്കിയത് തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ശംഖുമുഖം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലും പതിനായിരങ്ങൾ ഇന്ന് ബലിതർപ്പണം നടന്നു

പാകിസ്ഥാൻ പ്രകോപനമൊന്നും കൂടാതെ മോർട്ടാർ ഷെല്ലുകളും ചെറിയ ആയുധങ്ങളും ഉപയോഗിച്ച് വെടിവെയ്പ്പ് ആരംഭിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയതായും ഇന്ത്യൻ ഭാഗത്ത് ആൾനാശമോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ലോഹറിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ട്രെയിൻ സർവ്വീസ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് അട്ടാരിയിലേക്ക് ഇന്ത്യ ട്രെയിൻ സർവ്വീസ് പുനരാരംഭിച്ചിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതിനെ തുടർന്നാണ് സംജോത എക്സ്പ്രസ് ട്രെയിൻ സർവ്വീസ് നിർത്തിവച്ചത്

ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്ന ഖനി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്

ജീവിതോപാധിക്കായി ആയിരങ്ങളാണ് ഇത്തരം ഖനികളിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നത്